കൊച്ചി തുറമുഖത്ത് അന്താരാഷ്ട്ര ക്രൂയിസ് ടെർമിനൽ സാഗരിക ശ്രീ

കൊച്ചിൻ ഷിപ്പ്യാർഡ് ല്യൂമിറ്റഡിന്റെ മറൈൻ എഞ്ചിനീയറിംഗ് ട്രെയിനിംഗ് ഇന്റസ്റ്റിറ്റ്യൂട്ടിനും പ്രധാനമന്ത്രി തുടക്കം കുറിക്കും

കണ്ണൂർ സർവ്വകലാശാലയിൽ നവകേരളം യുവ കേരളം പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം